പൌരത്വ ഭേദഗതി ബിൽ പാസ്സായതിൽ അസമിലെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടെതില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബില്ലിനെ ചോദ്യം ചെയ്ത് മുസ്തിംലീഗ് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചു കേന്ദ്ര മത്സ്യബന്ധന നിയന്ത്രണ കരട് നിയമം പിൻവലിക്ക ണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി

പി രാമകൃഷ്ണൻ തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേള നാളെ സമാപിക്കും

പൌരത്വ ഭേദഗതി ബിൽ പാസ്സായതിൽ അസമിലെ സഹോ ദരീ സഹോദരന്മാർ ആശങ്കപ്പെടേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോ ദി അറിയിച്ചു അസം ജനതയുടെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കു മെന്ന് ഇംഗ്ലീഷിലും അസം ഭാഷയിലും എഴുതിയ ട്വീറ്റുകളിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഒരാൾക്കും അവകാശങ്ങൾ കവർന്നെ ടുക്കാനാവില്ലെന്നും അസം ജനതയുടെ വ്യക്തിത്വവും മനോഹര മായ സംസ്കാരവും വളരുന്നതും തഴയ്ക്കുന്നതും തുടരുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി അസം ജനതയുടെ രാഷ്ട്രീയവും ഭാഷയും സാംസ്കാരവും ഭൂമി അവകാശങ്ങളും ഭരണഘടനാപ രമായി സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി

പി മാരായ പി കെ കുഞ്ഞാ ലിക്കുട്ടി ഇ

മുഹമ്മദ് ബഷീർ പി വി അബദുൾ വഹാബ് പി കെ നവാസ്കനി എന്നിവർ നേരിട്ടെത്തിയാണ് ഹർജി സമർപ്പിച്ച ത് പൌരത്വ ബില്ലിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഹർജി നേരിട്ട് ഫയൽ ചെയ്യുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി പിന്നീട് മാധ്യമ ങ്ങളെ അറിയിച്ചു ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെ തിരാണ് പൌരത്വബില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പൌരത്വം നൽകു ന്നതിന് ആരും എതിരല്ല ഒരു വിഭാഗത്തെ ഒഴിവാക്കി പൌരത്വം നൽകാൻ നിയമം കൊണ്ടുവന്നത് വിവേചനപരമാണെന്നും രാജ്യ ത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യസംഭവമാണിതെന്നും കുഞ്ഞാ ലിക്കുട്ടി പറഞ്ഞു ഇന്ന് മതത്തിന്റെ പേരിൽ നടക്കുന്ന വിവേചനം നാളെ ഭാഷയുടെയും നിറത്തിന്റെയും പേരിൽ ആകാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ സുപ്രീംകോടതിയെ സമീപി ക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി ന്യൂഡൽഹിയിൽ പറഞ്ഞു

പൌരത്വ ഭേദഗതി ബിൽ രാജ്യത്തിന്റെ അടിസ്ഥാനഘടനയെ തകർക്കുന്നതാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറ ഞ്ഞു രാജ്യത്തെ വിഭജിക്കാനും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും വേണ്ടിയാണ് ബില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വിലക്കയറ്റം പൌരത്വ ഭേദഗതി ബിൽ സ്ത്രീ സംരക്ഷണ ത്തിലെ വീഴ്ച അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ യു ഡി എഫിന്റെ പ്രതി ഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹിന്ദുക്കളുടെതും മുസ്ലിങ്ങളുടെതും വൃത്യസ്ഥ സംസ്കാരമാണെങ്കിലും ഒരു മനുഷ്യന്റെ രണ്ട് കണ്ണുകൾ പോലെ യാണ് അവരെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇന്ത്യയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ നീതിയും അവസരസമത്വവുമാണ് കോൺഗ്രസ് വിഭാവനം ചെയ്തതെന്നും ചെന്നിത്തല പറഞ്ഞു കലക്ടറേറ്റുകൾക്ക് മുന്നിൽ നടന്ന യു

എഫ് ധർണ കോട്ടയത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കോഴിക്കോട്ട് കെ

സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനും കണ്ണൂരിൽ ഡോ

കെ മുനീറും ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര മത്സ്യബന്ധന നിയന്ത്രണ കരട് നിയമം പിൻവലിക്ക ണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതിഅംഗം എ കെ ആന്റണി ആവശ്യപ്പെട്ടു നിയമം തീരദേശത്ത് പ്രയാസങ്ങൾ സൃഷ്ടിക്കു മെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിയമം പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോട തിയെ സമീപിക്കുമെന്ന് ആന്റണി അറിയിച്ചു

ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഗ്രാമ വികസനത്തിന് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സയൻസ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്

ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശസ്ഥാപന ങ്ങൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കോഴിക്കോട് പേരാമ്പ്രയിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ നാലാംവാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഗ്രാമസഭകൾ ചേർന്ന് ദുരന്തനിവാരണപ്രവർത്തനങ്ങളുടെ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നവകേരള സൃഷ്ടിക്ക് തദ്ദേശസ്ഥാപനങ്ങളുടേയും ഒരുമിച്ചുള്ള പ്രവർത്തനം വേണമെന്നും അദ്ദേഹം പറഞ്ഞു

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷനായിരുന്നു കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഇന്ന് പാരസൈറ്റ് നൊ ഫാദേഴ്സ് ഇൻ കാശ്മീർ ദി അൺനോൺ സെയിന്റ് എന്നീ ചിത്രങ്ങൾ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം വീണ്ടും പ്രദർശിപ്പിക്കും

ഉദ്ഘാടന ചിത്രമായിരുന്ന പാസ്സ്ഡ് ബൈ സെൻസർ വേർഡിക്ട് ലെസ് മിസറബിൾസ് എന്നിവ ഇന്ന് പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളിൽ പെടുന്നു മത്സര ചിത്രങ്ങളിൽ നിന്ന് മേളയിലെ ഇഷ്ടചിത്രം തിരഞ്ഞെടുക്കാനായി പ്രേക്ഷകരുടെ വോട്ടിങ്ങിനും ഇന്നു തുടക്കമായി

സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും

സമാപന സമ്മേളനത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരത്തിന് അർഹമാകുന്ന ചിത്രം പ്രദർശിപ്പിക്കും അയോധ്യാ തർക്കഭൂമി കേസ് വിധിക്കെതിരെ സമർപ്പിച്ച പുനപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഉച്ചകഴിഞ്ഞ് പരി ഗണിക്കും തുറന്ന കോടതിക്ക് പകരം ചീഫ് ജസ്റ്റിസ് എസ്

അഞ്ചംഗ ബെഞ്ചാണ് റിവ്യൂ ഹർജികൾ പരിശോധിക്കുന്ന ത്

വെറ്ററിനറി ഡോക്ടറെ പീഡനത്തിനി രയാക്കി കൊലപ്പെടുത്തിയ നാല് പ്രതികൾ ഏറ്റുമുട്ടലിൽ മരിച്ച സംഭവത്തിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി വി

സിർപുൾക്കറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവ് തെലങ്കാന ഹൈക്കോടതിയിലെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെയും തുടർ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു സ്വതന്ത്രാന്വഷേണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച രണ്ട് പൊതുതാൽപ്പര്യ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ എസ് എ നസീർ സഞ്ജീവ് ഖന്ന എന്നി വരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് കൊലപാതക ബലാത്സംഗ സംഭവങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ നൽകി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് എല്ലാ അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കും പ്രസ് കൌൺസിലിനും കോടതി നോട്ടീസയച്ചു ഏറ്റുമുട്ടലിനെ കോടതിയിൽ ന്യായീകരിച്ച തെലങ്കാന ഗവൺമെന്റ് പ്രതികൾ പൊലീസിന്റെ രണ്ട് തോക്കുകൾ തട്ടിയെ ടുത്ത് അവർക്കുനേരെ വെടിവെച്ചുവെന്ന് അറിയിച്ചു ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാംഘട്ട വോട്ടെ ടുപ്പിൽ ഭേദപ്പെട്ട പോളിങ്

കേരള മീഡിയ അക്കാദമി മാധ്യമ അവാർഡുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ തിരുവനന്തപുരത്ത് സമ്മാനിക്കും മീഡിയ അക്കാദമി കേരളത്തിലെ മികച്ച കലാലയ മാഗസിനുകൾക്കായി ഏർപ്പെടുത്തിയ മത്സരത്തിലെ വിജയികൾക്കും പുരസ് കാരം നൽകും മത്സരത്തിൽ കോഴിക്കോട് ഫറൂഖ് കോളേജ് പൂക്കോട് ഗവ വെറ്ററിനറി ആനിമൽ സയൻസ് കോളേജ് കോഴിക്കോട് ഗവ മെഡിക്കൽ കോളേജ് എന്നിവർക്കാണ് ആദ്യ മൂന്ന് സമ്മാനങ്ങൾ കോഴിക്കോട് ജില്ലാ കേരളോത്സവത്തിന്റെ കലാ മത്സരങ്ങൾക്ക് നാളെ ബാലുശ്ശേരിയിൽ തുടക്കമാകും

നാളെ രാവിലെ കല്ലേക്കുളങ്ങര റെയിൽവേ ഗ്രൌണ്ടിൽ മന്ത്രി കെ

ഏഴിമല നാവിക അക്കാദമിയിൽ നടക്കുന്ന പത്താമത് പായ് വഞ്ചിയോട്ട മത്സരത്തിൽ റഷ്യ മുന്നിൽ മൂന്നാം റൌണ്ട് മത്സരങ്ങൾ ഇന്ന് നടക്കും ബ്രിട്ടൺ രണ്ടാംസ്ഥാനത്തും ഇസ്രായേൽ മൂന്നാം സ്ഥാനത്തു മാണ് ഇംഹാൻസിന്റെയും അസോസിയേഷൻ ഫോർ സോല്യൂഷൻ ഫോക്കസ് പ്രാക്ടീസസ് ഇന്ത്യാ ചാപ്റ്ററിന്റേയും ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി

വരാപ്പുഴ കസ്റ്റഡി മരണക്കേസിൽ നാല് പ്രതികൾക്കെതിരെ ക്രൈംബ്രാഞ്ച് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും വരാപ്പുഴ മൂൻ എസ് ഐ ദീപക് അടക്കം നാല് പ്രതികൾക്കെതിരെ പറവൂർ കോട തിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക ആരോപണ വിധേയനായ ഡി ഐ

വി ജോർജ്ജിനെ സാക്ഷിയാക്കിയാണ് കുറ്റപത്രം വയനാട് സർവജന സ്കൂൾ വിദ്യാർത്ഥിനി ഷഹല ഷെറിൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അധ്യാപകരായ സി

കെ മോഹനൻ ബത്തേരി താലൂക്കാശുപത്രി യിലെ ഡോക്ടർ ജിസ മെറിൻ ജോയ് എന്നിവരാണ് ഹർജി നൽകി യത്

മന്ത്രി എ കെ ബാലൻ വൈകീട്ട് സമാ പന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പത്തു ദിവസത്തെ മേളയിൽ ഗോത്ര വർഗ്ഗ പൈതൃക കലകളുടെ അവതരണവും പട്ടിക വിഭാ ഗക്കാരുടെ കരകൌശല ഉൽപ്പന്ന പ്രദർശന വിൽപന എന്നിവ യുമാണ് നടക്കുന്നത് കോഴിക്കോട് ഈസ്റ്റ്ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതി നിർദ്ദേശം കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചിരിക്കുകയാണെന്ന് മാനവ വിഭവ ശേഷി മന്ത്രി രമേഷ് പൊക്രിയാൽ അറിയിച്ചതായി എം കെ രാഘ വൻ എം പി പറഞ്ഞു സമരത്തിന്റെ പേരിൽ കേന്ദ്രീയ വിദ്യാലയ ത്തിന് വരുത്തിയ നാശനഷ്ടം കണക്കാക്കി ശക്തമായ നിയമന ടപടിയെടുക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു വയനാട്ടിലെ കിൻഫ്രാ പാർക്കിൽ ഇന്നലെ രാത്രി തീ പിടുത്തമുണ്ടായി കിൻഫ്ര വ്യവസായ പാർക്കിലെ വെർഗോ എക്സ്പോർട്സ് എന്ന സ്പോഞ്ച് നിർമ്മാണ യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സൂചന

മാറുന്ന കാലത്തിനനുസരിച്ച് നഗരാസൂത്രണപദ്ധതികൾ നവീ കരിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃ ത്വത്തിൽ ശില്പശാലയ്ക്ക് തുടക്കമായി നഗരത്തിൽ നടപ്പാക്കുന്ന പത്ത് പദ്ധതികളുടെ സാധ്യതകളും വെല്ലുവിളികളും ടൌൺഹാ ളിൽ നടക്കുന്ന ശിൽപ്പശാലയിൽ ചർച്ചചെയ്യും പദ്ധതികൾ സംബ ന്ധിച്ച് നഗരത്തിലെ ആർക്കിടെക്ചറൽ കോളജുകളിലെ പി ജി വിദ്യാർത്ഥികളുടെ പ്രൊജക്ട് അവതരണവും മാറുന്ന കോഴിക്കോട് വിഷയത്തിൽ വിദഗ്ദ്ധരുടെ ചർച്ചയും പരിപാടിയുടെ ഭാഗമാണ് കോഴിക്കോട് ജില്ലയിൽ ദുരന്ത നിവാരണ സേനയായ റെസ്ക്യൂ മിഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചതായി ജില്ലാപഞ്ചാ യത്ത് പ്രസിഡണ്ട് ബാബു പറശ്ശേരി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം